ന്യൂഡൽഹിയിൽ തുട്ക്ക്മായി ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ വ്യോട്ടർമാരിലെത്തിക്കാൻ പ്രവർത്തകരോട് പാർട്ടി അധ്യക്ഷിൻ അമിത് ഷാ

ഇന്ത്യാ ഗെയിംസിൽ മൂന്ന് സ്വർണ്ണവും രണ്ട് വെള്ളിയും

ഉത്തർപ്രദേശ് ഹരിയാന ഹിമാചൽപ്രദേശ് ഡൽഹി രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് കരാറിൽ ഏർപ്പെട്ടത് കേന്ദ്ര ജലവിഭവ നദീവികസന മന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിദ്ധ്യത്തിൽ നടന്ന ചടങ്ങിൽ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രി മാരും പങ്കെടുത്തു

ആറു സംസ്ഥാന ങ്ങളിലെ ജലസേചന കുടിവെള്ളക്ഷാമത്തിനും ജലതർക്കങ്ങൾ ക്കും കരാറിലൂടെ പരിഹാര്യമാപ്പുമെന്ന് മന്ത്രി ഗഡ്കരി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ കേന്ദ്രഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ വോട്ടർമാരിലെ ത്തിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ വികസന യാത്രയെ മുന്നോട്ട് നയിക്കണമെന്നും ബിജെപി അധ്യക്ഷൻ അമിത് ഷാ പ്രവർത്തക രോട് പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന മഹാസഖ്യം ഒരു മരീചികയാണെന്നും കേന്ദ്രത്തിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രം സംബന്ധിച്ച് സുപ്രീംകോടതിക്ക് മുന്നിലുള്ള കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാംഗങ്ങൾ ബിജെപി മുഖ്യമന്ത്രിമാർ എം പി മാർ മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്

പിമാർ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സംഘടനാ നേതാക്കൾ തുടങ്ങി എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളേയും പാർട്ടി യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധുന ചെയ്യും

ആർ

മൂന്ന് യാത്രികരെ ബഹിരാകാശത്തയച്ച് തിരികെ എത്തിക്കുന്ന ഏഴ് ദിവസം നീണ്ട് നിൽക്കുന്ന ദൌത്യത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്

ദേര സച്ചാ സൌദ തലവനായ ഗുർമിത് റാം റഹിം സിങിന് പുറമെ കൃഷ്ണലാൽ നിർമ്മൽ കുൽദ്ദീപ് സിങ് എന്നിവരാണ് മറ്റ് പ്രതികൾ

മേളയോടനുബന്ധിച്ചു സൂജ്ജമാക്കിയ കലാഗ്രാമം ഗവർണർ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത്തു്

വിപുലമായ സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്

സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഇന്നലെ മാറ്റിയ അദ്ദേഹത്തെ ഫയർ സർവ്വീസ് ഡയറക്ടർ ജനറലായി നിയമിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജസ്റ്റിസ് എ

സിക്രി കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരടങ്ങിയ ഉന്നതാധികാര സെലക്ഷൻ സമിതിയാണ് അലോക് വർമ്മയെ മാറ്റാൻ തീരുമാനിച്ചത് ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ എതിർപ്പിനെ അവഗണിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത്

ക്രിമിനൽ നടപടികൾക്കെതിരെ അസ്താനയ്ക്ക് സംരക്ഷണം നൽകി കൊണ്ട് നേരത്തെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് കോടതി റദ്ദാക്കി സിബിഐ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവേന്ദ്രകുമാറിനും ഇടനിലക്കാൻ മനോജ് പ്രസാദിനുമെ്തിരെ സമർപ്പിക്കപ്പെട്ട എഫ്

മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത്

ഹോൾഡ് വോയിസ് പ്ര തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അവസാന മണിക്കൂറുകളിൽ ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം സംബന്ധിച്ച റിപ്പോർട്ടും പരിഹാര നിർദ്ദേശങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറയ്ക്കാണ് റിപ്പോർട്ട് കൈമാറിയത് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉമേഷ് സിൻഹയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ

രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് മരണംകൂറ്റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജയ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ക്ട്സുകൾ റിപ്പോർട്ട് ചെയ്തത്

ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഞ്ഞുവീഴ്ചയുടെ ആഘാതം സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു

ഡിസംബറിൽ ഈജിപ്തിലെത്തിയ രണ്ടു ജർമ്മൻകാരെ കാണാതായതായി നേരത്തെ ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു

എ ഇ യിൽ നിന്ന് കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പൌരനായ ക്രിസ്ത്യൻ മിഷേലിന് വിദ്ദേൾപൌരന്മാർക്ക് ലഭിക്കുന്ന പരിഗണന നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

ഡിസംബറിൽ അറസ്റ്റിലായ അദ്ദേഹത്തിന് വിദേശപൌരത്വ പരിഗണന നൽകണമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ക്രിസ്ത്യൻ മിഷേൽ ഇപ്പോൾ തിഹാർ ജയിലിലാണ്